എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനെ തോൽപ്പിച്ച് കിംഗ്സ് ഇലവൻ പഞ്ചാബ് പ്പേഓഫ് സാധ്യത സജീവമാക്കി വാർത്തകൾ വിശദമായി ഉത്സവകാലത്ത് കോവിഡ് പ്രതിരോധത്തിൽ വീഴ്ച വരുത്തരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ജനങ്ങൾ സുരക്ഷിതരായി കഴിയുന്നതും കുടുംബാംഗങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നതും കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ഏഴാം തവണയാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത് ലോക്ഡൌൺ പിൻവലിച്ചെങ്കിലും കൊറോണ വൈറസിനെ തുടച്ചുനീക്കിയെന്ന് അതിനർത്ഥമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് സ്ഥിതി മെച്ചപ്പെട്ടുവരികയാണ്

കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കുന്നതുവരെ ജനങ്ങൾ അലംഭാവം കാണിക്കരുതെന്നും കോവിഡിനെതിരായ പോരാട്ടം ദുർബലമാക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വാക്സിൻ ലഭ്യമായാൽ ഉടൻ രാജ്യത്തെ എല്ലാവർക്കും അത് എത്തിക്കുന്നതിന് വിശദമായ പദ്ധതി തയ്യാറാക്കി വരികയാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി രാജ്യത്ത് കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദേദ സംസ്ഥാനത്ത് ഇന്നലെയും കോവിഡ് രോഗമുക്തരുടെ എണ്ണം വർദ്ധിച്ചു

മറ്റു ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് രോഗബാധിതർ ദേദ സംസ്ഥാനത്ത് ആദ്യ കോവിഡ് കേസ് സ്ഥിരീകരിച്ച തൃശൂർ ജില്ലയിൽ ഇടവേളയ്ക്കു ശേഷം കോവിഡ് വ്യാപനം വർധിക്കുകയാണ്

ജനങ്ങളുടെ അശ്രദ്ധയാണ് രോഗവ്യാപനത്തിന് കാരണമെന്ന് ജില്ലാ കലക്ടർ എസ്

സെക്ടറൽ മജിസ്ട്രേറ്റുമാർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്

ദേദ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ എം

വിവിധ മത സംഘടനാ നേതാക്കളും മത മേലധ്യക്ഷന്മാരും സാമൂഹിക പ്രവർത്തകരുമായും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് രോഗബാധിതരായി മരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് മാർഗനിർദേശങ്ങൾ ഗവൺമെന്റിന് നൽകിയതെന്ന് ഡോക്ടർ മുനീർ കോഴിക്കോട്ട് പറഞ്ഞു

പരിശോധനകളുടെ എണ്ണം കുറച്ച് കേരളം കോവിഡ് മുക്തമാണെന്ന് വരുത്തിത്തീർക്കാനാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ദേദ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികൾ നേരിടുന്ന പ്രയാസം കണക്കിലെടുത്ത് പ്രചാരണത്തിന് തുക വർദ്ധിപ്പിക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര തീരുമാനം

വൻതോതിൽ സായുധരായ ചൈനീസ് സൈനികരുടെ വൻ സംഘം പെട്ടെന്ന് ആക്രമണം നടത്തിയിട്ടും തന്ത്രപരമായി അനുകൂലമല്ലാത്ത ആ പ്രദേശത്ത് അവർ ധീരമായി പോരാടി

ന്യൂഡൽഹിയിലെ ദേശീയ പൊലീസ് മെമ്മോറിയലിൽ രാവിലെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ രക്തസാക്ഷികളായ പൊലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരാജ്ഞലി അർപ്പിക്കും ദ്ദേ കാർഷിക പാരമ്പര്യമുളള വയനാട് ജില്ലയിൽ ജൈവ കൃഷി രീതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി എം

കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളുടെ നിർവ്വഹണ പുരോഗതി വിലയിരുത്താൻ വയനാട് കലക്ടറേറ്റിൽ ചേർന്ന ദിശ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ തനത് നെൽവിത്തുകൾ സംരക്ഷിക്കപ്പെടണമെന്നും കർഷക സംഘങ്ങൾക്ക് വായ്പ മൊറട്ടോറിയത്തിൽ സബ്സിഡി ഒഴിവാക്കുന്നതിനെതിരെ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു

തുടർന്ന് കണ്ണൂർ വിമാനത്താവളം വഴി അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനെ അഞ്ചുവിക്കറ്റിന് തകർത്ത് കിംഗ്സ് ഇലവൻ പഞ്ചാബ് പ്ലേഓഫ് സാധ്യത സജീവമാക്കി

ഇന്ന് അബുദാബിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും ദേദ സംസ്ഥാന വനിതാ വികസന കോർപറേഷൻ ജീവനക്കാരുടെ ശമ്പള പരിഷ്ക്കരണം നടപ്പിലാക്കുന്നതിന് അംഗീകാരം നൽകിയതായി മന്ത്രി കെ

ദേദ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

ജെ പി മലപ്പുറം ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദ്ദേ ടൈംടേബിൾ പരിഷ്ക്കരണത്തിന്റെ ഭാഗമായി കേരളത്തിലോടുന്ന അഞ്ച് ജോടി പാസഞ്ചർ ട്രെയിനുകൾ നിർത്തലാക്കാൻ എടുത്ത തീരുമാനം അടിയന്തരമായി പുനപരിശോധിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം

യാത്രക്കാർ കുറവാണെന്ന പേരിൽ നിർത്തലാക്കുന്ന പാസഞ്ചർ ട്രെയിനുകൾ സാധാരണക്കാരായ നൂറുകണക്കിന് യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു

ബംഗളുരുവിൽ നിന്ന് രാത്രി എട്ടിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റെദിവസം വൈകീട്ട് അഞ്ചിന് കന്യാകുമാരിയിലെത്തും

പെൺകുട്ടിയുടെ അമ്മ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം

ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാവണം അന്വേഷണമെന്നും നിലവിലെ അന്വേഷണ സംഘത്തിലെ ആരും പുതിയ സംഘത്തിൽ വേണ്ടെന്നും കോടതി പറഞ്ഞു